മിൽമാ പാലിന്റെ വർദ്ധിപ്പിച്ച വില നിലവിൽ വന്നു ൾ ൽ ൾ കേന്ദ്ര മോട്ടോർ വാഹന നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് വാഹന പരിശോധന ഇന്ന് പുനരാരംഭിക്കും നിയമ ലംഘനങ്ങൾക്ക് ഉയർന്ന പിഴ നിശ്ചയിച്ചതിനെ തുടർന്ന് ഓണക്കാ ലത്ത് വാഹനപരിശോധനയും പിഴചുമത്തലും നിർത്തി വെച്ചിരുന്നു മുഖ്യമന്ത്രിയുമായി മന്ത്രി എ

ശശീന്ദ്രൻ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന വീണ്ടും ആരംഭിക്കുന്നത് എന്നാൽ നിയമലംഘനങ്ങൾക്ക് ഉയർന്ന പിഴത്തുക ഈടാക്കില്ല പകരം കേസുകൾ പിഴ ചുമത്താതെ കോടതിക്ക് കൈമാറും പിഴ യുടെ കാര്യത്തിൽ അന്തിമതീരുമാനമെടുക്കാൻ ശനിയാഴ്ച്ച മൂഖ്യ മന്ത്രി ഉന്നതതലയോഗം വിളിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ മഴക്കെടുതി വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘം ഇന്ന് കണ്ണൂർ എറണാകുളം ജില്ലകൾ സൃന്ദർശിക്കും രാവിലെ ജില്ലാ കലക്ടർമാർ ഇരു ജില്ലകളിലേയും പ്രളയ നാശം സംബന്ധിച്ച വിവരങ്ങൾ സംഘത്തെ ധരിപ്പിക്കും വയനാട്ടിലെ സന്ദർശനത്തിന് ശേഷം കേന്ദ്രസംഘം ഇന്നലെ രാത്രി കണ്ണൂരിൽ എത്തിയിരുന്നു കണിച്ചാർ ശാന്തിഗിരി നീണ്ടുനോക്കി പാൽച്ചുരം നൊച്ച്യാട് മട്ട ന്നൂർ പഴശ്ശികനാൽ റോഡ് കക്ക്ംപാറ തുടങ്ങിയ പ്രദേശങ്ങൾ സംഘം സന്ദർശിക്കും അഭ്യന്തർ ജോയിന്റ് സെക്രട്ടറി ശ്രീപ്രകാ ശിന്റെ നേതൃത്വത്തിലാണ് നാലംഗ സംഘം കണ്ണൂർ സന്ദർശിക്കുന്ന ത് എറണാകുളം ജില്ലയിൽ കേന്ദ്രസംഘം ആലുവാ മണപ്പുറം കുന്നുകര വയൽക്കര പുത്തൻവേലിക്കര തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിക്കും ഇന്നലെ വയനാട് തൃശൂർ ജില്ലകളിലെ സന്ദർശനം കേന്ദ്രസംഘം പൂർത്തിയാക്കിയിരുന്നു നാളെ തിരുവനന്തപുരത്ത് മുഖൃമന്ത്രി റെവന്യു മന്ത്രി മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി സംഘം കൂടിക്കാഴ്ച്ച നടത്തിയ ശേഷമായിരിക്കും റിപ്പോർട്ട് തയാറാക്കുന്ന ത് മരടിലെ ഫ്ളാറ്റുകൾ പൊളിച്ചുനീക്കാൻ സുപ്രീം കോടതി അനുവദിച്ച സമയപരിധി നാളെ അവസാനിക്കും ഫ്ളാറ്റുകൾ പൊളിക്കുന്ന കാര്യത്തിൽ ഇതുവരെ സ്വീകരിച്ച നടപടികളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് ഇന്ന് ഡൽഹിയിലേക്ക് പോകും

മുതിർന്ന അഭിഭാഷകരുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും ഏത് തരത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കേരളാ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഋഷികേശ് റായ് അടക്കം നാല് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ സുപ്രീം കോടതി ജഡ്ജിമാ രായി നിയമിച്ചു പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലെ കൃഷ്ണ മുരാരി രാജസ്ഥാൻ ഹൈക്കോടതിയിലെ എസ് രവിചന്ദ്ര ഭട്ട് ഹിമാ ചൽ പ്രദേശിലെ പി രാമസുബ്രഹ്മണ്യൻ എന്നിവരാണ് മറ്റ് ജഡ്ജി മാർ

സുപ്രീം കോടതി കൊളീജിയത്തിന്റെ തീരുമാനം കേന്ദ്രഗവൺമെന്റ് അംഗീകരിക്കുകയായിരുന്നു പാലക്കാട് റെയിൽവെ ഡിവിഷണൽ കമ്മറ്റി ചെയർമാനായി എം

രാഘവൻ എംപിയെ തെരഞ്ഞെടുത്തു ഇന്നലെ തിരുവനന്തപു രത്ത് ചേർന്ന എംപിമാരുടെ യോഗത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം ഡിവിഷണൽ കമ്മറ്റി ചെയർമാനായി കൊടിക്കു ന്നിൽ സുരേഷ് എംപിയെയും തിരഞ്ഞെടുത്തു മലബാർ മേഖല യിൽ മെമു ട്രെയിനുകൾ അനുവദിക്കുമെന്ന് റെയിൽവെ അധികൃ തർ ഉറപ്പ് നൽകിയതായി എം

രാഘവൻ പറഞ്ഞു മലബാറിന്റെ റെയിൽവേ വികസനത്തിന് കൂടുതൽ കരുത്തോടെ പ്രയത്നിക്കു മെന്നും അദ്ദേഹം വൃക്തമാക്കി കോഴിക്കോട് റെയിൽവെ സ്റ്റേഷൻ ലോകോത്തര നിലവാരത്തി ലേക്കുയർത്തുന്ന പദ്ധതിയുടെ പ്രവൃത്തി വേഗത്തിലാക്കണമെന്നാ വശ്യപ്പെട്ടപ്പോൾ കരാർ കമ്പനി സമർപ്പിച്ച സാമ്പത്തിക രേഖകൾ പരിശോധിച്ചു വരുന്നതായും പ്രവൃത്തികൾ വൈകാതെ തുടങ്ങു മെന്നും റെയിൽവെ ജനറൽ മാനേജർ അറിയിച്ചു കോഴിക്കോട് മധു ര ബെങ്കലൂരു റൂട്ടുകളിൽ പുതിയ സർവ്വീസുകൾ ആരംഭിക്കണമെന്ന ആവശ്യവും സർപ്പീസ് നീട്ടൽ പരിഗണിക്കാമെന്നും ഉറപ്പ് നൽകി അങ്ങാടിപ്പുറം കോഴിക്കോട് പുതിയ റെയിൽവെ ലൈൻ സർവ്വേ റിപ്പോർട്ട് സമർപ്പിച്ചു ബോർഡ് തീരുമാനം കാത്തിരിക്കുകയാണെന്നും അധികൃതർ വൃക്തമാക്കി

പാലായിൽ കൃാമ്പുചെയ്യുന്ന മുഖൃമന്ത്രി പിണറായി വിജയൻ എൽ

എഫ് സ്ഥാനാർത്ഥിയുടെ മൂന്നു തിരഞ്ഞെടുപ്പു യോഗങ്ങളിൽ പ്രസംഗിക്കും രാവിലെ മുത്തോലിക്ക വലയിലും വൈകീട്ട് പൈകയിലും കൂരാലിയിലും മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുയോഗങ്ങളിൽ സംസാരിക്കും സിപിഎം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷണൻ ഇന്നും നാളെയും പ്രചാരണ പരിപാടികളാൽ പങ്കെടുക്കും മുതിർന്ന കോൺഗ്രസ് നേതാവ് എ

ആന്റണി ഉദ്ഘാടനം ചെയ്ത യുഡിഎഫ് മഹാ സംഗമത്തിൽ മുന്നണി നേതാക്കളെല്ലാം പങ്കെടുത്തു ഇന്നു മുതൽ ഉമ്മൻ ചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും അടക്കം വലിയ നേതൃനിര പാലായിലുണ്ടാകും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻ പിള്ളയും ദേശീയ ജനറൽ സെക്രട്ടറി ബി ്രമുരളീധര റാവുവും അടക്കം നേതാക്കൾ എൻഡിഎയുടെ പ്രചാരണം നയിക്കുന്നു എൽഡിഎഫ് സ്ഥാനാർത്ഥി മാണി

കാപ്പന്റ മണ്ഡല പര്യടനം ഇന്നലെ സമാപിച്ചു യുഡിഎഫ് സ്ഥാനാർത്ഥി ജോസ് ടോം മീനച്ചിൽ എലിക്കുളം പഞ്ചായത്തുകളിലും പാലാ നഗരസഭയിലും ഇന്ന് പരൃടനം നടത്തും എൻ ഡി എ സ്ഥാനാർത്ഥി എൻ ഹരി തലപ്പലം ഭരണങ്ങാനം കരൂർ രാമപുരം പഞ്ചായത്തുകളിലും പരൃടനം നടത്തും

മാതൃഭാഷക്ക് മേൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ഒരിക്കലും ആവ ശ്യപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ വൃക്തമാക്കി രണ്ടാം ഭാഷ എന്ന നിലയിൽ ഹിന്ദി ഉപയോഗം ഉണ്ടാകണമെന്ന് മാത്രമാണ് ഹിന്ദി ദിവസാചരണ പരിപാടിയിൽ ആവശ്യപ്പെട്ടതെന്ന് അദ്ദേഹം റാഞ്ചി യിൽ വൃക്തമാക്കി

മന്ത്രി യുടെ വിശദീകരണത്തെ തുടർന്ന് തമിഴ്നാട്ടിൽ ഡിഎംകെ നാളെ നടത്താനിരുന്ന പ്രതിഷേധം ഉപേക്ഷിച്ചു ഇലക്ട്രോണിക്സ് സിഗരറ്റുകളുടെ നിർമാണവും വിതരണവും ഉപയോഗവും ഓർഡിനൻസിലൂടെ നിരോധിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചു ഇവയുടെ ഇറക്കുമതിയും സംഭരണവും പരസൃങ്ങളും ഒരു ലക്ഷം രൂപ വരെ പിഴയും ഒരു വർഷം തടവൂം ലഭിക്കാവുന്ന കുറ്റമാക്കിയിട്ടുണ്ട്

ഭരണഘടനയുടെ അന്തസത്തക്ക് വിരുദ്ധമായ വികാരമാണ് വിധിയിൽ പ്രകടമായതെന്ന് ബഞ്ച് വിലയിരുത്തി

ശാലയുടെ അവലോകന യോഗ ത്തിൽ പങ്കെടുക്കുന്ന മന്ത്രി ശുചിത്വ നടീൽ യജ്ഞത്തിലും പങ്കെ ടുക്കും തുടർന്ന് ഉദ്യോഗമണ്ഡലിലെ ഫാക്ട് പ്ലാന്റ് സന്ദർശിക്കും നാളെ കൊച്ചി തുറമുഖ ട്രസ്റ്റ് സന്ദർശിക്കും സ്വച്ഛ ഭാരത് സേവാ യജ്ഞം സൈക്കിൾ റാലി മാസികാ പ്രകാശനം തുടങ്ങിയ പരിപാ ടികളിലും കേന്ദ്രമന്ത്രി സംബന്ധിക്കും

അവസാന മത്സരം ഞായറാഴ്ച ബെങ്കലൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കും മോസ്കോയിൽ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ രണ്ട് മെഡലുകൾ ഉറപ്പിച്ചു

കസാഖിസ്ഥാനിൽ ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ

കോഴിക്കോട് കല്ലാനോട് സമാപിച്ച പതിനാറാമത് കോഴിക്കോട് ജില്ലാ ജൂനിയർ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കൊടുവള്ളി കെ

ഒ ഹയർ സെക്കന്ററി സ്കൂളും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളും ജേതാക്കളായി ഇരു വിഭാഗങ്ങളിലും ഹൈടെക് പബ്ലിക് സ്കൂൾ കുറ്റ്യാടി മൂന്നാം സ്ഥാനം നേടി പാലാരിവട്ടം പാലം വിഷയത്തിൽ മുൻ പൊതുമരാമത്ത് മന്ത്രി വി

ഇബ്രാഹിം കുഞ്ഞിനെ നിയമസഭക്ക് പുറത്ത് വെച്ച് ചോദ്യം ചെയ്യുന്നതിന് സ്പീക്കറുടെ അനുമതി ആവശ്യമില്ലെന്ന് സ്പീക്കർ പി

എംഎൽഎ ഹോസ്റ്റലിൽ നിന്നോ നിയമസഭാ വളപ്പിൽ നിന്നോ ചോദൃം ചെയ്യുന്നതിന് അനുമതി വേണം

മിൽമ പാലിന്റെ വർധിപ്പിച്ച വില നിലവിൽ വന്നു ലിറ്ററിന് നാല് രൂപയാണ് വർധിപ്പിച്ചത് പുതുക്കിയ വില രേഖപ്പെടുത്തിയ പാക്കറ്റുകൾ ലഭ്യമാകുന്നതു വരെ പഴയ വില രേഖപ്പെടുത്തിയ പാക്കറ്റുകളിൽ തന്നെയാകും പാൽ വിതരണം പരിസ്ഥിതി പ്രാധാന്യം കണക്കിലെടുത്തും വാണിജ്യ ആരോഗ്യ സാധ്യതകൾ പരിഗണിച്ചും മുള സംരക്ഷണം ഉറപ്പാക്കാൻ സമൂഹ ത്തിന് ബാധ്യതയുണ്ടെന്ന് മന്ത്രി കെ

വേണാട് ജൈവ കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലത്ത് സംഘടിപ്പിച്ച ലോക മുളദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ചത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച ധീര ജവാൻ ഒ

സാജുവിനെ മാതൃവിദ്യാലയമായ ഇടുക്കി രാജാ ക്കാട് എൻആർ സിറ്റി എസ് എൻ

ഹയർ സെക്കന്ററി സ്കൂളിൽ അനുസ്മരിച്ചു

സിപിഐഎമ്മിലെ രജനി വിനോദിനെതിരെ യുഡിഎഫിന്റെ അവിശ്വാസ പ്രമേയം പാസായതിനെ തുടർന്നാണ് അണ്ണാ ഡിഎംകെ അംഗം എസ് പ്രവീണ പ്രസിഡന്റായത്